അഞ്ച് ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക്

ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാർലമെന്റ് മന്ദിരത്തിന് ന്യൂഡൽഹിയിലെ സൻസദ് മാർഗ്ഗിൽ ഉച്ചയ്ക്ക് തറക്കല്ലിടും

എസ് എൽ ഫുട്ബോളിൽ മുംബൈ സിറ്റി എഫ്

വാർത്തകൾ വിശദമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഇന്ന് കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിലാണ് വിധിയെഴുത്ത് അല്പസമയത്തിനകം തുടങ്ങുന്ന വോട്ടെടുപ്പ് വൈകിട്ട് ആറുവരെയാണ്

പോളിംഗ് സ്റ്റേഷനുകളിൽ മോക്പോൾ പൂർത്തിയായി ഏഴ്മണിക്ക് തന്നെ വോട്ടിംഗ് തുടങ്ങും ഇന്നലെ വൈകിട്ട് മൂന്നുമുതൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നത് വരെ സർട്ടിഫൈഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കോവിഡ് പോസിറ്റീവ് ആകുന്നവർക്കും ക്വാറന്റീനിൽ പ്രവേശിക്കുന്നവർക്കും ആരോഗ്യ ഡെസിഗ്നേറ്റഡ് വകുപ്പിലെ ഹെൽത്ത് ഓഫീസറുടെ സാക്ഷ്യപത്രത്തോടെ പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യാം

മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് അടുത്ത തിങ്കളാഴ്ചയാണ്

അഞ്ച് ജില്ലകളിൽ ചൊവ്വാഴ്ചയായിരുന്നു വോട്ടെടുപ്പ്

രും കോവിഡ് രോഗികളുടെ പ്രത്യേക തപാൽ ബാലറ്റുകൾ നിർബന്ധിച്ച് തിരികെ വാങ്ങരുതെന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു ചില പോളിംഗ് ഉദ്യോഗസ്ഥർ വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റുകൾ നിർബന്ധിച്ച് തിരികെ വാങ്ങുന്നതായി ശ്രദ്ധയിൽപെട്ടതിനെ തുടർന്നാണ് നിർദ്ദേശം പ്രത്യേക തപാൽ ബാലറ്റുകൾ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ മുഖേനയോ ആൾവശമോ തപാലിലൂടെയോ വരണാധികാരികൾക്ക് തിരികെ നൽകാം

രാവിലെ എട്ടിന് വോട്ടെണ്ണൽ തുടങ്ങും

ഓരോ കേന്ദ്രത്തിലെയും വോട്ടെണ്ണൽ പുരോഗതി കമ്മീഷന്റെ ട്രെൻഡ് സോഫ്റ്റ് വെയറിൽ തത്സമയം അപ് ലോഡ് ചെയ്യും ത്രിതല പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ ബ്ലോക്കുതല വിതരണ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും അതാത് സ്ഥാപനങ്ങളുടെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിലും ആദ്യം പോസ്റ്റൽ വോട്ടുകളും പിന്നീട് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകളും എണ്ണും രും മൂന്നാം ഘട്ടത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കണ്ണൂർ ജില്ലയിൽ പ്രചരണം ശക്തമായി

അഞ്ചരക്കണ്ടി ബഡ്സ് സ്കൂൾ ചെമ്പിലോട് പ്ലാസ്റ്റിക്ക് റീ സൈക്ലിംഗ് യൂണിറ്റ് എന്നിവ മുഖ്യമന്ത്രി സന്ദർശിക്കും

ജയരാജൻ കെ

ശൈലജ എം

മണി എന്നിവരും ഇന്ന് ജില്ലയിൽ പര്യടനം തുടരും

ജനറൽ സെക്രട്ടറി കെ

വേണുഗോപാൽ രാവിലെ പയ്യന്നൂരിൽ നിന്ന് പ്രചരണം തുടങ്ങും

ലോക് താന്ത്രിക് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് എം

ശ്രേയാംസ്കുമാർ ഇന്ന് കണ്ണൂരിൽ പ്രചരണം നടത്തും

മുസ്ലീം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി

കുഞ്ഞാലിക്കുട്ടി സുരേഷ്ഗോപി എം

എന്നിവരും നാളെ കണ്ണൂരിൽ എത്തുന്നുണ്ട്

വിജയരാഘവൻ ഇന്നും നാളെയും മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തും ഉച്ചകഴിഞ്ഞ് മൂന്നിന് എടപ്പാളിലാണ് ആദ്യപരിപാടി

രംഭ മനുഷ്യർ ഒറ്റക്കെട്ടായി കൊവിഡിനെ അതിജീവിക്കുമെന്നും പഴയ ജീവിതം തിരിച്ചുപിടിക്കുമെന്നും കടത്തനാട്ടിലെ കളരിഗുരു പത്മശ്രീ മീനാക്ഷി അമ്മ ആകാശവാണിയോട് പറഞ്ഞു

ആത്മ നിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പാർലമെന്റ് സമുച്ചയത്തിന് അടുത്താണ് പുതിയ മന്ദിരം

ചടങ്ങിൽ രാജ്യസഭാ ചെയർമാൻ എം വെങ്കയ്യ നായിഡു ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പങ്കെടുക്കും രംഭ കേന്ദ്ര മന്ത്രിസഭ ഇന്നലെ അംഗീകരിച്ച പി എം വാണി പദ്ധതി രാജ്യത്തെ വൈഫൈ ലഭ്യതയെയും സാങ്കേതിക മേഖലയെയും വിപ്ലവകരമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തികച്ചും സൌജന്യമായി പൊതുജനങ്ങൾക്ക് വൈഫൈ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയിൽ ഇതിനായി പൊതു സേവന ശൃംഖല സജ്ജീകരിക്കും ചെറുകിട വ്യാപാരികൾക്കും കടയുടമകൾക്കും ഇതിലൂടെ വരുമാന വർദ്ധന നേടാൻ കഴിയും യുവജനങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി പൂർണ്ണമായി ഉപയോഗിക്കാനും ഇതിലൂടെ കഴിയുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഡിജിറ്റൽ ഇന്ത്യ ദൌത്യത്തെ പദ്ധതി ശക്തമാക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി

രാത്രി ഏഴരയ്ക്കാണ് മത്സരം രുര പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് നിവേദനം നൽകി

രും കാർഷികോല്പന്നങ്ങളുടെ താങ്ങുവില തുടരുമെന്നും കാർഷികോല്പാദന സമിതികളുടെ ചന്തകൾ നിലനിർത്തുമെന്നും കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ആവർത്തിച്ച് വ്യക്തമാക്കി കർഷകന്റെ കൃഷിഭൂമി ആർക്കും കൈവശപ്പെടുത്താൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു രുര കാർഷിക മേഖലയിലെ വിവാദ നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ മനസ്സിലാക്കി അനുകൂല നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു കോർപ്പറേറ്റുകളുടെ വിപണിയിലെ കിടമത്സരത്തിനും കർഷകരെ വിട്ടുകൊടുക്കരുതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു രുര സ്വകാര്യ സ്കൂളുകളിലെ ഈ വർഷത്തെ ഫീസ് ഘടന സംബന്ധിച്ച് പൊതു വിദ്യാഭ്യാസ വകുപ്പ് മാർഗ്ഗ നിർദ്ദേശം പുറത്തിറക്കി കോവിഡ് സാഹചര്യം എല്ലാവരെയും സാമ്പത്തികമായി ബാധിച്ചതിനെത്തുടർന്ന് ഈ അധ്യയന വർഷം സ്കൂൾ നടത്തിപ്പിന് ആവശ്യമായതിലധികം തുക ഈടാക്കരുതെന്ന് മാർഗ്ഗ നിർദ്ദേശത്തിൽ പറയുന്നു രും കേരള കേന്ദ്ര സർവ്വകലാശാലയുടെ തിരുവല്ല നിയമ പഠന വിഭാഗം സംഘടിപ്പിക്കുന്ന മനുഷ്യാവകാശദിന ആഘോഷം രാവിലെ ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് ഗൂഗിൾമീറ്റിലൂടെ ഉദ്ഘാടനം ചെയ്യും നിയമ പഠന വിഭാഗം മേധാവി ഡോ

ജയശങ്കർ അധ്യക്ഷനായിരിക്കും